പാലിക്കേണ്ട പുതുക്കിയ ഉപാധികൾ പ്രാബല്യത്തിൽ വരുന്നവരെല്ലാം പരിശോധനയ്ക്ക് ്വിധേയരാകണം

നഗരസഭയിൽ നിയന്ത്രണ്ടങ്ങൾ ്നിലവിൽ വന്നു ജാഗ്രത കുറയുന്നതിനാൽ ്യിയന്ത്രണം കടുപ്പിക്കുമെന്ന് ഡി ജി

എസ്

ഐ നിയന്ത്രണത്തിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം

വരുന്ന എല്ലാവരും കോവിഡ് ജാഗ്രതാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം വിദേശത്ത് ടെസ്റ്റിന് വിധേയമാകാത്ത യാത്രക്കാർ രോഗലക്ഷണമില്ലെങ്കിൽ കൂടി വിമാനത്താവളത്തിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിൽ വിധേയരാകുകയും പോസിറ്റീവ് ആകുന്നവർ ആർ

പരിശോധനാ സൌകരൃം ഉള്ളതിനാൽ യു എ

സൌദിയിൽ നിന്ന് വരുന്നവരും കുവൈറ്റിൽ നിന്ന് പരിശോധനയ്ക്ക് വിധേയരാകാത്തവരും പിപിഇ കിറ്റ് ധരിക്കണം ഖത്തറിൽ നിന്ന് വരുന്നവർക്ക് എഹ്തെറാസ് ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉണ്ടാവണം

ടോക്കൺ ലഭിച്ച കടകൾക്ക് അത്യാത്ത് ദിവസങ്ങളിൽ കടകൾ തുറക്കാം നിർദ്ദേശങ്ങൾ പ്രിക്ലിച്ചാൽ കർശന നടപടിയു ണ്ടാകുമെന്ന് തിരുവന്ത്പുരം മേയർ കെ

ജനങ്ങളുടെ ജാഗ്രത കുറയുന്നതിനാലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് മാനദണ്ഡം പാലിക്കാത്തവരോട് ഇനി ഉപദേശമില്ലെന്നും പിഴ അടക്കം കർശന നടപടികളിലേക്ക് നീങ്ങുമെന്നും ഡിജിപി വൃക്തമാക്കി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തല ത്തിൽ സംസ്ഥാനത്തെ എല്ലാ പൊലീസ് ഉദ്യോഗസ്ഥരും സേവന സജ്ജരായിരിക്കാൻ നിർദ്ദേശമുണ്ട് എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലേയും എസ്

കണ്ടെയ്ന്റ്മെന്റ് സോണുകളിൽ അടിയന്തര ആവശൃങ്ങൾ ക്കല്ലാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കു മെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്

വി അടക്കമുള്ള ഉപകരണ ങ്ങൾ എത്തിച്ചു നൽകുന്ന നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ യും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടക്കുക യാണ് എല്ലാവർക്കും പഠന സൌകര്യങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടമെന്ന് കളക്ടർ അദീല അബ്ദുള്ള ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

എസ് എൽ

ഐ യുടെ നിയന്ത്രണത്തിലാക്കുന്നത് സംബന്ധിച്ച ഓർഡിനൻസിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി

രാജ്യത്തെ അർബൻ സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ കൊണ്ടുവരുന്നതാണ് ഓർഡിനൻസ്

രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം